രാജ്യത്തെ ഉയർന്ന രോഗമുക്തി നിരക്ക് കൊറോണവൈറസ് ദുർബലമായെന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണമായതായും ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നിവർ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ

എൽ ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ചെന്നൈയിൻ പോരാട്ടം

കോവിഡ് സംബന്ധിച്ച രാജ്യത്തെ സ്ഥിതിഗതികൾ വിശകലനം ചെയ്യാനായി സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രാജ്യത്തെ ഉയർന്ന രോഗമുക്തി നിരക്ക് കൊറോണവൈറസ് ദുർബലമായെന്ന തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇത് വലിയ തോതിലുള്ള ശ്രദ്ധ കുറവിനു വഴിതെളിക്കുന്നതായും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രതിരോധമരുന്ന് വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതും പരമാവധി രോഗവ്യാപനം കുറയ്ക്കേണ്ടതുമാണ് രോഗ സ്ഥിരീകരണ നിരക്ക് അഞ്ച് ശതമാനത്തിൽ താഴെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നും അദ്ദേഹം വിലയിരുത്തി

പോരാട്ടത്തെ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച് പ്രതിരോധമരുന്ന് വിതരണത്തിന് ആവശ്യമായ പ്രത്യേക നയത്തിന് രൂപം നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു പ്രതിരോധമരുന്നുകൾ ശീതീകരിച്ചു സഭരിക്കുന്നതിനു ആവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പാക്കാനായി സംസ്ഥാനങ്ങൾ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു വീഡിയോ കോൺഫാൻസിലൂടെ നടന്ന അവലോകന യോഗത്തിൽ ഡൽഹി രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് പശ്ചിമബംഗാൾ ഹരിയാന ഉത്തരാഖണ്ഡ് ആന്ധ്രപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുത്തു ന്യൂ ഡെസ്ക് ആകാശവാണി

അഖണ്ഡതയേയും സുരക്ഷയെയും ക്രമസമാധാനത്തെയും ബാധിക്കുമെന്ന് ദേശ ചൂണ്ടിക്കാട്ടിയാണ് ഈ ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്

ടി മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു

തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും നിരവധി ജില്ലകളിൽ വലിയതോതിലുള്ള മഴയാണ് രേഖപ്പെടുത്തിയത്

നാളെ വൈകിട്ടോടെ കാരയ്ക്കലിനും മാമല്ലപുരത്തിനും ഇടയിലായി നിവർ തീരം തൊടും അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് പുതുച്ചേരി മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച് തയ്യാറെടുപ്പുകൾ വിലയിരുത്തി

ചുഴലിക്കാറ്റിനെ തുടർന്ന് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ തീരപ്രദേശങ്ങളിലും റായലസീമ മേഖലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ മേഖലകളിലുള്ളവർ നാളെയും മറ്റന്നാളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്

എൻ ഡി എസ്ഥാനാർഥിയായി മുതിർന്ന ബി ജെ പി നേതാവ് വിജയ് സിൻഹയും മഹാസഖ്യത്തിനു വേണ്ടി ആർ ജെ ഡി നേതാവ് അവധ് ബിഹാരി ചൌധരിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

നിയമനിർമ്മാണ കാര്യനിർവ്വഹണ നീതിന്യായ വൃവസ്ഥകളുടെ സന്തുലിത സഹകരണം ഉൌർജ്ജസ്വലമായ ജനാധിപതൃത്തിലേക്കുള്ള താക്കോൽ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ഈ വർഷത്തെ സമ്മേളനം സംഘടിപ്പിക്കുക സമ്മേളനം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും

ഭക്ഷണശാലകൾ കോവിഡ് തരംഗത്തിന്റെ കേന്ദ്രങ്ങളായി മാറാനുള്ള സാധ്യതകൾ വിദഗ്ധർ അടുത്ത ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യത്തിൽ ഭക്ഷണശാലകളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു സ്കൂളുകളും കോളേജുകളും ഉടൻ തുറക്കില്ല എന്നാൽ രോഗവ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ ഉയർന്ന ക്ലാസുകളും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും തുറക്കുന്ന കാര്യം പരിശോധിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ശബരിമല തീർത്ഥാടകരും ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ദിവസം നീളുന്ന സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം ബഹറിൻ യു എ

ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് അധികാര കൈമാറ്റ പ്രക്രിയയ്ക്ക് തുടക്കം ആയിരിക്കുന്നത്

സുരക്ഷ നയതന്ത്രം ഭീകരവാദ വിരുദ്ധ പോരാട്ടം എന്നിവ സംബന്ധിച്ച നടപടികളും നഗ്രോട്ട സംഭവത്തിന്റെ വിശദാംശങ്ങളും വിദേശകാര്യ സെക്രട്ടറി പ്രതിനിധികളെ അറിയിച്ചു

കോവിഡിന്റെ സാഹചര്യത്തിൽ നേരത്തെ അനുവദിച്ചിരുന്ന തീയതി നീട്ടണമെന്ന് പെൻഷൻകാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു